ആദ്യഘട്ടത്തിൽ അടുത്ത മാസം എട്ട് മുതൽ ആരാധനാലയങ്ങളും ഹോട്ടലുകളും ഷോപ്പിങ്ങ് മാളുകളും തുറക്കാം

ത സംസ്ഥാനത്തെ സർവ്വകലാശാലാ വിദ്യാഭ്യാസ ഘടനയിൽ സമൂല മാറ്റമാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

വാർത്തകൾ വിശദമായി കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒഴികെ മേഖലകൾ ഘട്ടം ഘട്ടമായി തുറന്നു കൊടുക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ മാർഗനിർദേശം പുറപ്പെടുവിച്ചു

മറ്റ് മേഖലകളിൽ അടുത്ത മാസം എട്ട് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി എല്ലാ പ്രവർത്തനങ്ങളും അനുവദിക്കുന്നതിന് അൺലോക്ക് ഒന്ന് എന്ന പേരിലാണ് മാർഗനിർദേശങ്ങൾ പുറത്തിറക്കിയത്

പൊതു ചടങ്ങുകൾക്കും വിവാഹ മരണാനന്തര ചടങ്ങുകൾക്കും നിലവിലെ നിയന്ത്രണം തുടരും അടുത്ത മാസം എട്ട് മുതൽ ആരാധനാലയങ്ങളും ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഷോപ്പിങ്ങ് മാളുകളും ഹോസ്പ്പിറ്റാലിറ്റി സർവ്വീസുകളും തുറക്കാം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മറ്റ് മന്ത്രാലയങ്ങളും വകുപ്പുകളുമായി കൂടിയാലോചിച്ച് ഇതിന് മാർഗനിർദേശം പുറത്തിറക്കും രണ്ടാം ഘട്ടത്തിൽ സ്കൂളുകളും കോളജുകളും ട്രെയിനിങ്ങ് കോച്ചിങ്ങ് സെന്ററുകളും തുറക്കുന്ന കാര്യം സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും കൂടിയാലോചിച്ച് തീരുമാനിക്കും

മൂന്നാം ഘട്ടത്തിൽ അന്താരാഷ്ട്ര വിമാനസർവ്വീസ് മെട്രോ റെയിൽ ഗതാഗതം സിനിമാ തിയേറ്റർ ജിമ്നേഷ്യം പാർക്കുകൾ സ്വിമ്മിങ്ങ് പൂളുകൾ ബാറുകൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവ തുറക്കുന്നതും സാമൂഹിക കായിക വിനോദ സാംസ്കാരിക പരിപാടികളും മതപരമായ ചടങ്ങുകളും അനുവദിക്കുന്നതും സംബന്ധിച്ച് സ്ഥിതി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കും കണ്ടെയ്ൻമെന്റ് സോണുകളിൽ കർശനമായ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരും

മറ്റ് മേഖലകളിൽ രാത്രി യാത്രാ നിരോധനം രാത്രി ഒൻപത് മുതൽ പുലർച്ചെ അഞ്ച് വരെയായി ഇളവുവരുത്തി

അതേസമയം സ്ഥിതി വിലയിരുത്തി ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനമെടുക്കാം

ന്യൂസ് ഡസ്ക് ആകാശവാണി

തൃശൂർ ജില്ലയിൽ പത്തും പാലക്കാട് ഒൻപതും കണ്ണൂരിൽ എട്ടും കൊല്ലം ഇടുക്കി എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ നാലുവീതവും പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു കാസർകോട് ജില്ലയിൽ മൂന്ന് പേർക്കും തിരുവനന്തപുരം ആലപ്പുഴ ജില്ലകളിൽ രണ്ടുപേർക്കും കോട്ടയത്ത് ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്

പത്ത് പേരുടെ പരിശോധനാ ഫലമാണ് ഇന്നലെ നെഗറ്റീവായത്

വിദേശത്തു നിന്ന് വന്ന നാലുപേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു വന്ന മൂന്ന് പേർക്കും ഒരു ആംബുലൻസ് ഡ്രൈവർ വാളയാറിലെ ഒരു ആരോഗ്യപ്രവർത്തകൻ എന്നിവർക്കുമാണ് രോഗം ബാധിച്ചത്

ജയചന്ദ്രൻ നൽകുന്ന റിപ്പോർട്ട്

രണ്ടുപേർ ചെന്നൈയിൽനിന്ന് വന്നവരും രണ്ടുപേർ വിദേശത്തുനിന്ന് വന്നവരുമാണ് രുമ കൊല്ലം ജില്ലയിൽ കൊട്ടിയം പുനലൂർ തഴവ മണപ്പുറം സൌത്ത് ശരവണ നഗർ സ്വദേശികൾക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

ദേദ ഇടുക്കി ജില്ലയിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടെ നാലുപേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്

രുമ കൊവിഡ് ബാധിതനായി മരിച്ച ചെങ്ങന്നൂർ സ്വദേശി ജോസ് ജോയിയുടെ മൃതദേഹം ആലപ്പുഴ ചാത്തനാട് പൊതു ശ്മശാനത്തിൽ സംസ്കാരിച്ചു

ഇത്രയും പേർ ഒരു ദിവസം രോഗ മുക്തി നേടുന്നത് ഇതാദ്യമാണ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാതിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെക്കും

ദൂരദർശനും മൻകി ബാത് സംപ്രേഷണം ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞയുടൻ ആകാശവാണിയുടെ കേരളനിലയങ്ങളിൽ അതിന്റെ മലയാള പരിഭാഷ കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടാകും

മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർവകലാശാലകളിൽ പുതിയ ചുമതലകൾ നൽകുമ്പോൾ സീനിയോറിറ്റിക്കൊപ്പം കഴിവും മാനദണ്ഡമാക്കണം സർവകലാശാലകളിലെ ഉന്നത സമിതികൾ അക്കാഡമിക് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും മാറ്റങ്ങൾക്ക് അധ്യാപകരും തയ്യാറാവണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ മഹാത്മാ ഗാന്ധി സർവകലാശാലയുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷകൾ നാളെ ആരംഭിക്കും ലോക്ക്ഡൌൺ മൂലം ഇതര ജില്ലകളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് അതത് ജില്ലകളിൽ പരീക്ഷയെഴുതുന്നതിനായി എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് സർവകലാശാല അറിയിച്ചു രുമ സമ്പൂർണ്ണ ലോക്ഡൌൺ ദിനമായ ഇന്ന് സംസ്ഥാനത്ത് ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും ഡ്രൈഡേ ആചരിക്കാനും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്വാനം ചെയ്തിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ റസിഡൻസ് അസോസിയേഷനുകൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയാക്കും രുമ കേരള തീരത്തിനടുത്ത് തെക്കുകിഴക്കൻ അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ വ്യാഴാഴ്ച വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

രുമ മഴക്കാലത്തോടനുബന്ധിച്ച് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൊല്ലം കലക്ട്രേറ്റിൽ തുടക്കമായി യജ്ഞത്തിന്റെ തുടർപ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നും ജൂൺ ഏഴിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയുടെ പരിധിയിലെ വീടുകളും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനും കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിനും പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കലക്ടർ അറിയിച്ചു രുമ കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഡങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫിസർ അറിയിച്ചു